ഏതാനും പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടുകയും ചെയ്യും

ഓഫീസുകളുടെ ഭരണം പിടിച്ചടക്കാൻ നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് തന്ത്രമാണ് പിൻവാതിൽ നിയമനങ്ങളെന്ന് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ

വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ ഊർജ്ജ നഗര മേഖലകളിലെ വിവിധ വികസന പദ്ധതികൾ ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ നാടിന് സമർപ്പിക്കും ഏതാനും പുതിയ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തറക്കല്ലിടുകയും ചെയ്യും

കേരളത്തിന്റെ വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യം നിറവേറ്റാൻ പദ്ധതി സഹായകമാകും

അമ്യത് ദൌത്യത്തിന് കീഴിൽ നിർമ്മിച്ച തിരുവനന്തപുരത്തെ അരുവിക്കര ജലസംസ്കരണ പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും നഗരത്തിലെ കുടിവെള്ള വിതരണ സൌകര്യം മെച്ചപ്പെടുത്താനും ഇപ്പോഴത്തെ പ്ലാന്റുകളിൽ അറ്റകുറ്റപ്പണി നടക്കുമ്പോൾ ജലവിതരണം തടസ്സപ്പെടാതിരിക്കാനും പുതിയ പ്ലാന്റ് പ്രയോജനപ്പെടും തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡ് പദ്ധതി തിരുവനന്തപുരത്തെ തന്നെ സംയോജിത നിർദേശ നിയന്ത്രണ കേന്ദ്രം എന്നിവയ്ക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും

തുടർന്ന് തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനിലെ വകുപ്പ് സെക്രട്ടറിമാരുമായി സെക്രട്ടറിയേറ്റിൽ ഉന്നതലയോഗം ചേരും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടെ ദ്വീപ് വനം പരിസ്ഥിതി വകുപ്പിന്റെ അടൽ പര്യാവരൻ ഭവൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും നാളെയും മറ്റന്നാളും സുഹേലി കടമം ബംഗാരം ദ്വീപുകളിൽ ഔദ്യോഗിക പരിപാടികളിൽ മന്ത്രി പങ്കെടുക്കും പ്രകൃതി ചൂഷണം തടയാനും സംരക്ഷിത കടൽ ജീവജാലങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്താനും ആവിഷ്കരിച്ച നൂതന പദ്ധതികളുടെ പ്രവർത്തന പുരോഗതി അദ്ദേഹം വിലയിരുത്തും ദര കൊച്ചിക്ക് കൂടുതൽ മെട്രോ പാതയും ബി ജെ പി ക്ക് മെട്രോ മാനെയും കേരളത്തിൽ ലഭിച്ചെന്ന് കേന്ദ്രവാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു ലക്ഷദ്വീപ് യാത്രക്കിടെ കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയതായിരുന്നു കേന്ദ്രമന്ത്രി ബി ജെ പി കേരളത്തിൽ വലിയ പാർട്ടിയായി വളർന്നിരി ക്കുകയാണെന്നും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വലിയ നേട്ടം ഉണ്ടാക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേരളത്തിലെ ജനങ്ങൾ ഇതുവരെ പുലർത്തിയ രാഷ്ട്രീയ മനോഭാവം മാറ്റി ബി ജെ പിയ്ക്ക് വോട്ട് ചെയ്യും ലക്ഷദ്വീപിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം പ്രകാശ് ജാവ്ദേക്കർ തിങ്കളാഴ്ച കൊച്ചിയിലെത്തി കൊൽക്കത്തയിലേക്ക് പോകും ദേദ ഗവ ഓഫീസുകളുടെ ഭരണം പിടിച്ചടക്കാൻ നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് തന്ത്രമാണ് സംസ്ഥാനത്തെ പിൻവാതിൽ നിയമനങ്ങളെന്ന് മുതിർന്ന ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു ആലപ്പുഴയിൽ ബി ഡി ജെ എസ് സംസ്ഥാന പഠന ശിഖിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പി എസ് സി റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരെ തെരുവാധാരാമാക്കിയ ഗവ നിയമനത്തിന് മുട്ടിലിഴയേണ്ട അവസ്ഥ വരുത്തിവെച്ചിരി ക്കുകയാണെന്നും കുമ്മനം കുറ്റപ്പെടുത്തി പി എസ് സി വഴി മാത്രമെ നിയമനം നടത്തൂവെന്ന് പറയാൻ എൻ ഡി എയ്ക്കു മാത്രമെ കഴിയൂ

ശബരിമലയെയും വിശ്വാസികളെയും വഞ്ചിച്ച ചരിത്രമാണ് കോൺഗ്രസിനും മാർക്സിസ്റ് പാർട്ടിക്കുമെന്നും കുമ്മനം പറഞ്ഞു

പൊലീസ് സംവിധാനം മെച്ചപ്പെടുത്താൻ നിരവധി നടപടികൾ ഗവ

ഇടുക്കി ചെറുതോണിയിൽ പുതുതായി അനുവദിച്ച പീരുമേട് പൊലീസ് സബ് ഡിവിഷൻ ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി എം എം മണി അധ്യക്ഷനായിരുന്നു

മറ്റ് ജില്ലകളിൽ അഞ്ഞൂറിൽ താഴെയാണ് രോഗികൾ

കോവളം കേരളാ ആർട്സ് ആന്റ് ക്രാഫ്റ്റ് വില്ലേജിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ മന്ത്രി എ സി മൊയ്തീൻ അധ്യക്ഷനായിരിക്കും

കഴിഞ്ഞ വർഷത്തെ സ്വരാജ് ട്രോഫിയും മറ്റ് പുരസ്കാരങ്ങളും ചടങ്ങിൽ സമ്മാനിക്കും ദേദ ലോകോത്തര ട്രോമാകെയർ പരിശീലനവും അടിയന്തര വൈദ്യസഹായ പരിശീലനവും ലക്ഷ്യമാക്കി സംസ്ഥാനത്ത് ആദ്യമായി സ്ഥാപിക്കുന്ന അപെക്സ് ട്രോമാ ആന്റ് എമർജൻസി ലേണിംഗ് സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും മന്ത്രി കെ കെ ശൈലജ ചടങ്ങിൽ അധ്യക്ഷയായിരിക്കും ദേദ ഐ എസ് എൽ ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ചെന്നൈയിൻ എഫ് സി മത്സരം ഇരു ടീമുകളും മൂന്ന് ഗോൾ വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു ഇന്ന് വൈകീട്ട് ഏഴരയ്ക്ക് എ

കെ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാളിനെ നേരിടും

എറണാകുളത്തിനാണ് രണ്ടാം സ്ഥാനം

കോഴിക്കോടാണ് രണ്ടാം സ്ഥാനത്ത് എറണാകുളം മൂന്നാം സ്ഥാനം നേടി ദേദ കേരള ഫോക് ലോർ അക്കാദമിയുടെ ആദ്യ അന്താരാഷ്ട്ര ഫോക് ലോർ ചലച്ചിത്രോത്സവത്തിന് രാവിലെ പയ്യന്നൂരിൽ തിരിതെളിയും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

ശശിധരൻ

ഹയർ സെക്കണ്ടറി സ്കൂളിൽ പതിനൊന്നര കോടി രൂപയിലേറെ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ ബ്ലോക്കിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ തറക്കല്ലിട്ടു

ദ്ദേ പീരുമേട് ശുദ്ധജല വിതരണ ശൃംഖല മന്ത്രി കെ

ഏലപ്പാറയ്ക്കും സമീപ വില്ലേജുകൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും രും മഴ നിഴൽ പ്രദേശങ്ങളിലെ ജലക്ഷാമം പരിഹരിക്കാൻ മൂലത്തറ വലത്കര കനാൽ നീട്ടുന്നതിലൂടെ കഴിയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പാലക്കര കൊഴിഞ്ഞാംപാറയിൽ കനാൽ ദീർഘിപ്പിക്കൽ പദ്ധതി പ്രഖ്യാപനം നടത്തുകയായിരുന്നു അദ്ദേഹം പാലക്കാട് അന്തർ സംസ്ഥാന നദീജല സമഗ്ര കേന്ദ്രവും മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു നദീജല ഹബ്ബ് അനുബന്ധ സൌകര്യങ്ങൾ മന്ത്രി കെ കൃഷ്ണൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു ദേദ നിപ രോഗികളെ പരിചരിക്കുന്നതിനിടെ രോഗം ബാധിച്ച് മരിച്ച സിസ്റ്റർ ലിനിയുടെ സ്മരാണാർത്ഥം നിർമ്മിക്കുന്ന കുറത്തിപ്പാറ സെന്റർമുക്ക് പാലത്തിന് മന്ത്രി ടി പി രാമകൃഷ്ണൻ തറക്കല്ലിട്ടു എം എൽ എയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്ന് ഒരുകോടി രൂപ ചെലവിലാണ് പാലം നിർമ്മിക്കുന്നത് ദ്ദേ ലോകോത്തര നിലവാരത്തിൽ പുതുക്കി പണിത കോഴിക്കോട് കൈരളി ശ്രീ തീയേറ്റർ സമുച്ചയം മന്ത്രി എ കെ ബാലൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു ഇന്നു മുതൽ രണ്ടു തീയേറ്ററുകളിലും പതിവ് പ്രദർശനം തുടങ്ങും ദേദ പ്രശസ്ത സംഗീത സംവിധായകൻ ഐസക് തോമസ് കൊട്ടുകാപ്പിള്ളി ചെന്നൈയിൽ നിര്യാതനായി

മികച്ച സംഗീത സംവിധാനത്തിന് ദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ദേദ കേരളാ ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിന്റെ ഇടുക്കി കുടയത്തൂർ ലൂയി ബ്രെയിൽ സ്മാരക അന്ധ വിദ്യാലയത്തിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുമെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ് ഉറപ്പു നൽകി വാഴക്കുളത്ത് സംഘടിപ്പിച്ച ഇടുക്കി ജില്ലാ അദാലത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്

കോവിഡിനെ തുടർന്ന് തടസ്സപ്പെട്ട പ്രതിരോധ വാക്സിൻ പരിപാടി പൂർണമായി വീണ്ടെടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണിത്